പാലാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ

കാപ്പൻ നാമനിർദ്ദേശ പത്രിക സ്മർപ്പിച്ചു

എഫ്

എ സ്ഥാനാർത്ഥികളെ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കും

ചൊവ്വാഴ്ചമു തൽ കർശനപരിശോധനയെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ

നെഹ്റുട്രോഫി ജലോത്സവം ഇന്ന്

അസം പൌരത്വ രജിസ്റ്റർ പ്രശ്നം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അടി യന്തരനേതൃയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം

യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ക്രിസ്റ്റോസ് സ്റ്റൈലിയാനൈഡുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വൃക്തമാക്കിയത് ജമ്മു കശ്മീർ ലഡാക്ക് മേഖലകളിലെ ഭരണ വികസന പ്രതീക്ഷകൾ ഇരുവരും പങ്കുവച്ചു

സ്വാതന്ത്ര്യം ജനാധിപത്യം മതനിര പേക്ഷത പാർലമെന്ററി സംവിധാനം എന്നിവ കനത്ത ്വെല്ലുവിളി നേരി ടു കയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്തിരുവന്തപുരത്ത് റിട്ട യേർഡ് ലോയേഴ് സ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൌലികാവകാശങ്ങൾക്കുപോലും വിലയില്ലാത്ത അവസ്ഥയാണ് രാജ്യത്ത് നിലവിലുള്ളത് ഒരു രാഷ്ട്രീയ് നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കേണ്ട സാഹചര്യമാണ് ഇവിടെയുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാലാ ഉപതിരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി സി

എൻഡിഎ സ്ഥാനാർഥിയെ ബിജെപി രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കും

ഡി

സ്ഥാനാർത്ഥിയെ ചൊവ്വാഴ്ചക്കകം പ്രഖ്യാപിക്കുമെന്ന് മുന്നണി കൺവീനർ ബെന്നി ബെഹന്നാൻ പറഞ്ഞു സ്ഥാനാർത്ഥി കേര ളകോൺഗ്രസ് എം ചിഹ്നമായ രണ്ടിലയിൽതന്നെ മത്സരിക്കുമെന്നും അദ്ദേ ഹം മാധ്യമങ്ങളോട് വൃക്തമാക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കേരളാ കോൺസ് എമ്മിലെ ജോസ് കെ മാണി പക്ഷം നിയോഗിച്ച ഏഴംഗ സമിതി പ്രവർത്തകരും നേതാക്കളുമായി ആശയവിനിമയം തുടരുകയാണ് തോമസ് ചാഴികാടൻ അധ്യക്ഷനായ സമിതി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് നാളെ യുഡിഎഫിനെ അറിയിക്കുമെന്ന് ജോസ് കെ മാണി വിഭാഗം കോട്ടയത്ത് അറിയിച്ചു ജോസ് കെ മാണി പക്ഷം നിർദേശിക്കുന്ന പേര് അംഗീകരിക്കുമെന്ന് യുഡിഎഫ് നേതൃത്വം ഉറപ്പു നൽകിയതായും അവർ പറഞ്ഞു

ഡിജിപി ലോക്നാഥ് ബെഹ്റയെ വിമർശിച്ചതിന്റെ പേരിൽ കെ

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനു മ തി ന ൽ കിയ ഗവൺമെന്റ് നടപടി വിലകുറഞ്ഞ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി നടപടിയെ രാഷ്ട്രീയപരമായും നിയമപരമായും കോൺഗ്രസ് നേരിടു മെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായിയുടേത് ഫാസിസ്റ്റ് നടപടിയാണെന്നും ചെന്നിത്തല അഭിപ്രാ യപ്പെട്ടു പുതുക്കിയ മോട്ടോർ വാഹന ഭേദഗതി നിയമം നാളെ പ്രാബല്യത്തിൽ വരും ഗതാഗത നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തുന്നതാണ് പുതിയ നിയമം പിഴയിൽ പത്ത് മടങ്ങോളം വർദ്ധന വരുത്തിയിട്ടുണ്ട്

വാഹനപ്പരിശോധന ചൊവ്വാഴ്ചമുതൽ കർശനമാക്കുമെന്ന് മന്ത്രി എ

ഏതുകുറ്റത്തിനും പിഴയടച്ചില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു കുറ്റക്കാരെ സാമൂഹൃ പ്രവർത്തനത്തിന് അയക്കാനും ഉദ്ദേശൃമുണ്ടെന്നും മന്ത്രി പറ ഞ്ഞു പാലാരിവട്ടം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിക്ക് നേരിട്ട് തുക നൽകാനുള്ള ഒരു ഫയലും താൻ കണ്ടിട്ടില്ലെന്ന് മുൻമന്ത്രി ഇബ്രാഹീം കുഞ്ഞ് പറഞ്ഞു ഗവണ്മെന്റ് നയം അനുസരിച്ചുള്ള ഫയൽ മാത്രമേ താൻ കണ്ടിണ്ടുള്ളുവെന്നും വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചാൽ ഇത് മനസ്സിലാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും ഇബ്രാഹീം കുഞ്ഞ് വ്യക്തമാക്കി

മെട്രോ സർവ്വീസ് മഹാരാജാസ് മുതൽ തൈക്കുടം വരെ നീട്ടുന്നതിന്റെ ഭാഗമായാണ് പരിശോധന സുരക്ഷാ കമ്മീഷണറുടെ അനു മതി ലഭിച്ചാൽ ചൊവ്വാഴ്ച തന്നെ സർവ്വീസ് തുടങ്ങും

മഹാരാഷ്ട്രയിലെ ധുലൈ ജില്ലയിലെ രാസവസ്തു നിർമ്മാണ ശാല യിലുണ്ടായ സ്ഫോടനത്തിൽ എട്ടുപേർ മരിച്ചു

ഫാക്ടറിയിലെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം നട ന്നതെന്നാണ് പ്രാഥമിക നിഗമനം സ്ഫോടനം നടക്കുമ്പോൾ ഫാക്ടറി യിൽ നൂറിലേറെ ജീവനക്കാരുണ്ടായിരുന്നെന്ന് പൊലീസ് പറഞ്ഞു ഇനിയും മരണസംഖൃ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ന് ആലപ്പുഴ പുന്നമട കായലിൽ സംസ്ഥാനത്തെ വള്ളംകളികളെ കോർത്തിണക്കി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും

കാര്യവട്ടം സ് പോർടസ് ഹബിൽ രാവിലെ ഒൻപതിന് തുടങ്ങാനിരുന്ന മത്സരം ഇതു വരെ ആരംഭിക്കാനായിട്ടില്ല പിച്ച് ഉണങ്ങാത്തതാണ് കാരണം ഗോകുലം ടീമിന്റെ അടുത്ത ലക്ഷ്യം ഐ ലീഗിന്റെ ജയമാണെന്ന് കോച്ച് ഫെർണാണ്ടോ വെ രേല പറഞ്ഞു കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മീറ്റ് ദി പ്രസ്സ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറഞ്ഞ സമയം മാത്രമാണ് ടീമിന് ലഭിച്ചതെന്നും കോച്ചിന്റെ പരിശ്രമമാണ് ടീമിന് മികച്ച വിജയം സമ്മാനിച്ചതെന്നും ഗോളി സി

ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിറ്റ് ഇന്ത്യ മൂവ് മെൻറിന്റെ ഭാഗമായി നാളെ കണ്ണൂരിൽ നിന്ന് മാടായി പാറയിലേക്ക് സൈക്കിൾ റൈഡ് നടത്തും കാനനൂർ സൈക്സിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ രാവിലെ ഏഴു മണിക്ക് ടൌൺ സ്ക്യറിൽ നിന്ന് സൈക്കിളോട്ടം ആരംഭിക്കും ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ ഒളിമ്പ്യപ്യൻ മാനുവൽ ഫെഡറിക്കിന് നാളെ കണ്ണൂരിൽ പൌരസ്വീകരണം നൽകും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ രാവിലെ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് സ്വീകരണം വിദ്യാർത്ഥികൾ മൌലികാവകാശങ്ങളെകുറിച്ചും ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണമെന്ന് ഗവർണർ പി

ഭരണഘടനയുടെ അടിസ്ഥാനതത്വങ്ങളും മൌലി കാവകാശങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകർ ശ്രദ്ധിക്ക ണമെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുസ്ഥാൻ സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് അസോസിയേഷൻ കേരളയുടെ പ്രഥമ രാജ്യ പുരസ്കാർ അവാർഡ് കൊച്ചിയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെയും മറ്റെന്നാളും കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപ്പാടികളിൽ പങ്കെടുക്കും നാളെ രാവിലെ മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ടൂറിസ്റ്റ് ബോട്ടിന്റെ ഉദ്ഘാടനം പറശ്ശിനി പാലത്തിന് സമീപം മുഖ്യമന്ത്രി നിർവഹിക്കും കടമ്പൂരിൽ ഹരിത കേരള മിഷന്റെ കീഴിലുള്ള വിവിധ പദ്ധതികളുട്ടെ സംസ്ഥാന തല ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും